കാർഷിക പരിഷ്കരണങ്ങളോടൊപ്പം കുറഞ്ഞ താങ്ങൂവിലയും മുൻപ് ഉണ്ടായിരുന്ന വിപണി സംവിധാനവും അതേപടി നിലനിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷകരുമായി കേന്ദ്ര മന്ത്രിമാരുടെ ഉന്നതതല സമീതി ഇന്ന് ചർച്ച

തെക്കൻ കേരളം തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേരളത്തിൽ നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധൃത

ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാളിനെ നേരിടും

തന്റെ ലോക്സഭാ മണ്ഡലമായ വാരാണ്സിിയിൽ ഇന്നലെ നടന്ന പൊതുസമ്മേളനത്തിൽ പുതിയ കർഷക നിയമങ്ങൾ രാജ്യത്തെ കർഷകർക്ക് പുതിയ അവസരങ്ങളും നിയമ സംരക്ഷണവും നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ പഴയ സംവിധാനത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതാകാം കർഷകരുടെ ക്ഷേമത്തിനായാണ് പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പരിഷ്കാരങ്ങൾ പുതിയ വിപണി അവസരങ്ങൾ നൽകുകയും മുൻപുണ്ടായിരുന്ന കാർഷിക വിപണികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കേന്ദ്രമന്ത്രിമാരുടെ ഉന്നതതല സമിതിയുമായി വൈകുന്നേരം മൂന്ന് മണിക്ക് ഡൽഹി വിജ്ഞാൻ ഭവനിലാണ് ചർച്ചു ആദ്യഘട്ട ചർച്ചയിൽ പങ്കെടുത്ത കർഷക നേതാക്കളാണ് ഇന്നും ചർച്ചയിൽ പങ്കെടുക്കുകയെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിങ് തോമർ അറിയിച്ചു നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി മുതിർന്ന ബിജെപി നേതാക്കളുമായി നടത്തിയ ബന്ധപ്പെട്ട് കൂടിയാലോചനയ്ക്കു ശേഷമാണ് കർഷികരുമായി വീണ്ടും ചർച്ച നടത്താനുള്ള തീരുമാനം ഡൽഹിയിൽ പ്രിഷേധിക്കുന്ന കർഷകർ ബുരാരി മേഖലയിലെ നിരൻകാരി മൈതാനത്തിലേക്ക് മാറണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ്ആവശ്യപ്പെട്ടു

വിശദാംശങ്ങളുമായി കൃഷ്ണ വോയ്സ് രാജ്യത്ത് കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ തുടർച്ചയായി കുറവ് രേഖപ്പെടുത്തുന്നതിനൊപ്പം മരണസംഖ്യയും കുറഞ്ഞുവരികയാണ്

രണ്ടായിരത്തിലേറെ പേർക്കാണ് ശ്രാജ്യത്ത് ഇതിനകം കോവിഡ് ബാധിച്ചത്

നേരത്തെയുള്ള രോഗനിർണയവും മാറ്റിപാർപ്പിക്കലും ഫലപ്രദമായ ചികിത്സയും കോവിഡ് കേസുകളും മരണനിരക്ക് കുറയ്ക്കാൻ സഹായിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ലോകാരോഗ്യസംഘടന നിർദ്ദേശത്തെക്കാൾ അഞ്ച് ശതമാനം അധികമാണ് രാജ്യത്തെ പരിശോധനാ നിരക്ക്

മൂന്നിടങ്ങളിലായാണ് ഇവിടെ വാക്സിൻ സൂക്ഷിക്കുന്നതിനുള്ള കെട്ടിടങ്ങൾ സജ്ജീകരിക്കുന്നത്

അതേസമയം കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന യൂറോപ്പിലും അമേരിക്കയിലും ചില വാക്സിനുകൾ ട്രയൽ പൂർത്തിയാക്കിയ ശേഷം ഗവൺമെന്റിന്റെ അംഗീകാരം തേടിയിട്ടുണ്ട്

ഇതനുസരിച്ച് മാസ്ക്ക് ധരിക്കാത്തവരിൽ നിന്ന് പിഴ ഇൌടാക്കാനും തിരക്ക് കുറവുള്ള സമയങ്ങളിൽ വിലക്കിഴിവ് നൽകാനും നിർദേശമുണ്ട് ഓൺലൈനായി വാങ്ങുന്നതിനെ സാധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കണ്ടയ്ൻമെന്റ് സോണുകളിലും കൂടുതലായി രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലും മാർക്കറ്റുകൾ അടച്ചിടുന്നതിനും നിർദ്ദേശമുണ്ട് കച്ചവട മേഖലകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നതിനുവേണ്ട നടപടികൾ വ്യാപാരസംഘടനകൾ മാർഗ്ഗ നിർദ്ദേശത്തിൽ പറയുന്നു

രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി തികഞ്ഞ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ശക്തമായ സേനാവിഭാഗം ആണ് ബിഎസ്എഫ് എന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു എല്ലാ ബിഎസ്എഫ് ജവാൻമാർക്കും അഭിവാദ്യമർപ്പിച്ച ശ്രീ അമിത്ഷാ ബിഎസ്എഫ് സേനാംഗങ്ങൾ കർത്തവ്യ പാലനം എന്ന ആപ്തവാക്യം ജീവിതാവസാനം വരെ പാലിക്കുന്നവരാണെന്ന് ട്വീറ്റ് ചെയ്തു

പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രകൃതിരമണീയത യുടെയും സവിശേഷമായ മിശ്രണമാണ് നാഗാലാൻഡ് എന്ന് രാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു വരുംവർഷങ്ങളിൽ നാഗാലാൻഡിന്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും അ ജനങ്ങളുടെ ക്ഷേമത്തിനുമായി ഉപരാഷ്ട്രപതി ആശംസകൾ നേർന്നു ധീരതയ്ക്കും ദയയ്ക്കും പേരുകേട്ടവരാണ് നാഗാലാൻഡിലെ ജനങ്ങളെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞൂ പിർഅവരുടെ സംസ്കാരം മാതൃകാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്

മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്

എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാളിനെ നേരിടും

ഇന്നലെ നടന്ന നോർത്ത് ഈസ്റ്റ് യുണ്ണെറ്റഡ് എഫ് സി ഗോവ മത്സരം സമനിലയിൽ അവസാനിച്ചു

സ്ഥാനാർഥികളാണ് മത്സരിക്കുന്നത്